ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം ഗാന്ധിയൻ സന്ദേശങ്ങളിൽ ഉണ്ടെന്ന് പ്രധാന്മുന്തി നരേന്ദ്രമോദി

രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചറി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി ്എൽ വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർല ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റ് കേന്ദ്ര മന്ത്രിമാർ ബി ജെ

നേതാക്കൾ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ പൂഷ്പാർച്ചന നടത്തി

മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങളും ആശയങ്ങളും എന്നും പ്രസക്തിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

അഹമ്മദാബാദിൽ സബർമതി ആശ്രമത്തിലെ ഗാന്ധിജയന്തി ആഘോഷങ്ങളിലും ഗാന്ധി അനുസ്മരണ പരിപാടിയിലും പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ സബർമതി ആശ്രമ പരിസരത്ത് നിന്ന് പ്ലാസ്റ്റിക്ക് നീക്കം ചെയ്യുന്ന ശുചീകരണ പരിപാടിയിലും പ്രധാനമന്ത്രി ് പങ്കെടുത്തു അല്പസമയത്തിനകം സബർമതി നദീതീരത്ത് നടക്കുന്ന ചടങ്ങിൽ ഇരുപതിനായിരത്തോളം ഗ്രാമത്തലവൻമാരുടെ സാന്നിദ്ധ്യത്തിൽ രാജ്യത്തെ വെളിയിട വിസർജ്ജനമുക്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന പുസ്തകത്തിന്റെയും മഹാത്മാഗാന്ധിയുടെ പുറത്തിറക്കുന്ന പോസ്റ്റൽ സ്റ്റാമ്പിന്റെയും പ്രകാശനം ചടങ്ങിൽ പ്രധാനമന്ത്രി നിർവഹിക്കും

വോയിസ് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിലും ബോധവത്കരണത്തിലും ഗാന്ധിയൻ സംഘടനകൾ കൂടുതൽ മുൻകൈയെടുക്കണമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായ പ്പട്ടു ഗാന്ധിജിയെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും നിലനിർത്തുമെന്ന പ്രതിജ്ഞയാണ് ഓരോ ഇന്ത്യക്കാരും ഈ ദിനത്തിൽ ചൊല്ലേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു

ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള രണ്ട് ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളും രചനകളും സംബന്ധിച്ച് എം

മാർ തങ്ങളുടെ ആശയങ്ങൾ നിയമസഭയിൽ പങ്കുവയ്ക്കും ആന്ധ്രാപ്രദേശിൽ വിപുലമായ പരിപാടികളാണ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടന്നത് പ്പാസ്റ്റിക് ഉപേക്ഷിക്കുക ശുചിത്വം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രയിൽ റാലികളും പൊതുയോഗങ്ങളും നടന്നു തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനവും നടന്നു ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്പാസ്റ്റിക് നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ ശുചീകരണ പരിപാടികളും ബോധവൽക്കരണ പരിപാടികളും കർണാടകയിൽ സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ അമൂല്യമായ ജീവിത സന്ദേശം ഉൾപ്പെടുത്തിയുള്ള യോജന മാസികയുടെ പ്രത്യേക പതിപ്പ് കർണാടക് മുഖ്യമന്ത്രി ബി

മധ്യപ്രദേശിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനാഘോഷങ്ങളോടൊപ്പം മുൻ പ്രധാനമന്ത്രി ലാർബഹാദൂർ ശാസ്ത്രിയുടെ ജന്മവാർഷിക ദിനവും ആഘോഷിച്ചു

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ലാൽബഹാദൂർ ശാസ്ത്രിയുടെട് അന്ത്യവിശ്രമ സ്ഥലമായ ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ നടത്തി

ബ്ലോക്ക് വികസന കൌൺസിലുകളിലേക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംസ്ഥാന ഭരണകൂടം ഇവരെ മോചിപ്പിച്ചത് ് കഴിഞ്ഞ ആഗസ്റ്റ് അഞ്ച് മുതൽ നാഷണൽ കോൺഫറൻസ് ്കോൺഗ്രസ് എൻ

്തുടങ്ങിയ വിവിധ പാർട്ടികളിൽപ്പെട്ട നേതാക്കൾ വീട്ടുതടങ്കലിലായിരുന്നു

മുന്നണികളുടെ പ്രചാരണം കൂടുതൽ ഊർജ്ജിതമായിട്ടുണ്ട്

ഗവൺമെന്റ് അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതോടെ താൽക്കാലികമായി പുനഃസ്ഥാപിച്ച വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കും

ക്യേന്ദ്ര് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലാണ് ന്യൂഡൽഹിയിൽ ് ശുചിത്യ പ്രിശോധനാ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്

അതിനിടെ തമിഴ്നാട്ടിലെ ട്രിച്ചി റെയിൽവേ സ്റ്റേഷന് ഐ എസ്

ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചട്ടങ്ങൾ പാലിച്ച് പരിസ്ഥിതി സൌഹൃദ നടപടികൾ എടുത്തിനാണ് അംഗീകാരം

രാഹുൽ ഗാന്ധി എം

തുടർന്ന് കൽപ്പറ്റ കളക്ട്രേറ്റിൽ ചേരുന്ന യോഗത്തിൽ ശ്രീ

ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഐക്യരാഷ്ട്രസഭ പിന്തുടരുന്നതെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു